പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭക ളിലുംനടപടികൾ നിർത്തിവെച്ചു

ശേരുക്കുക്കുക്കു പ്രതിപക്ഷ പാർട്ടികളുടെ മഹാസഖ്യം മിഥ്യാസങ്കൽപ്പം മാത്ര മാണെന്ന് ബിജെപി അധ്യക്ഷൻ അമിത്ഷാ അഭിപ്രായപ്പെട്ടു

ശിവ സേന വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ക്കൊപ്പമുണ്ടാകു മെന്നും ഇതിന്റെ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അമിത്ഷാ വെളിപ്പെടുത്തി ബി ജെ പി അധികാരത്തിലെത്തേ ണ്ടത് രാജ്യത്തിന്റെ ആവശ്യം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു

രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വ്യത്യസ്ത വിഷ യങ്ങളാണ് ചർച്ചയാവുന്നത് റിപ്പബ്ലിക് ഉച്ചകോടിയിൽ പങ്കെടു ക്കുകയായിരുന്നു അമിത്ഷാ കെ എസ് ആർ ടി സിയിലെ പ്രതിസന്ധിക്ക് ഉടൻ പരിഹാരം കാണുമെന്ന് എം ഡി ടോമിൻ ജെ തച്ചങ്കരി തിരുവനന്തപുരത്ത് പറഞ്ഞു

മെക്കാനിക്കൽ ക്ലറിക്കൽ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ കണ്ടക്ടർ ബാഡ്ജ് പരീക്ഷ പാസായാൽ അവ ർക്കും കണ്ടക്ടർമാരായി നിയമനം നൽകും ആധുനിക രാജ്യ ങ്ങളിലേതു പോലെ കണ്ടക്ടറില്ലാതെ നഗരങ്ങളിൽ നിന്ന് നഗര ങ്ങളിലേക്ക് ബസ്സോടിക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നും ദീർഘകാല അവധിയിൽ പ്രവേശിച്ചവരെ തിരിച്ചുവിളിക്കാൻ തീരു മാനിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഇപ്പോഴത്തെ പ്രതിസന്ധിയിലും കെ എസ് ആർ ടിസി യുടെ വരുമാനം കുറ ഞ്ഞിട്ടില്ലെന്നും നഷ്ടത്തിലോടി ബാധൃതയുണ്ടാക്കാനല്ല കോർപ്പ റേഷനെ ലാഭകരമായി കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി

ഇതിന്റെ കൌൺഡൌൺ ഇന്നലെ ഉച്ചക്ക് ആരംഭി ച്ചിരുന്നു

പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭയിലും ലോക്സഭയിലും നടപടികൾ നിർത്തിവെച്ചു

രാജ്യസഭയിൽ റഫേൽ വിഷയം സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണമെ ന്നാവശ്യപ്പെട്ട് പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷം സഭയിലെത്തി യത് അണ്ണാ ഡി എം കെയും കാവേരി നദിയിൽ കർണാടക ഗവ അണക്കെട്ടുണ്ടാക്കുന്നതിൽ പ്രതിഷേധിച്ചും നടുത്തളത്തി ലിറങ്ങി ഇതേ തുടർന്ന് സഭാധ്യക്ഷൻ സമ്മേളനം ഇന്നത്തേക്ക് പിരിയാൻ തീരുമാനിക്കുകയായിരുന്നു ലോക്സഭയിൽ കോൺഗ്രസ് അണ്ണാ ഡി എംകെ ടി ഡി പി അംഗങ്ങൾ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് സഭാ നടപടികൾ തട സ്സ്പ്പെടുത്തിയതിനെ തുടർന്നാണ് സ്പീക്കർ ഉച്ചവരെ സമ്മേളനം നിർത്തിവെച്ചത് റഫേൽ ഇടപാടിൽ സംയുക്ത പാർലമെന്ററി അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസ് അംഗങ്ങളുടെ ബഹളം

അഗസ്റ്റ വെസ്റ്റ് ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിലെ ഇടനിലക്കാരൻ ക്രിസ്റ്റ്യൻ മിഷേലിനെ ഇന്ന് വീണ്ടും ഡൽഹി കോടതിയിൽ ഹാജരാക്കും

മഞ്ചേശ്വരം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം ചോദൃംചെയ്ത് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി വീണ്ടും മാറ്റി

മഞ്ചേശ്വരം എംഎൽഎയായിരുന്ന പി

അബ്ദുർറസാഖിന്റെ മകൻ ഷെഫിൻ റസാഖിനെ കേസിൽ കക്ഷി ചേർക്കണമെന്ന ആവശ്യം കോടതി നേരത്തെ അംഗീകരിച്ചിരുന്നു രാഷ്ട്രീയത്തിന് അതീതമായ മതേതര നിലപാടാണ് എൻ എസ് എസിന്റേതെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പ്രസ്താവനയിൽ വ്യക്തമാക്കി അജ്ഞതകൊണ്ടാണ് സിപി ഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംഘടനയെ വിമർശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു

സ്വന്തം പാർട്ടിയുടെ വീഴ്ചയാണ് കോടിയേരിയും സിപിഐ എമ്മും പരിശോധിക്കേണ്ടതെന്നും സുകുമാരൻ നായർ പറഞ്ഞു ശബരിമലയിൽ സന്നിധാനത്തിനു സമീപം പൊലീസുകാർ ബൂട്ടിട്ട് പ്രവേശിച്ച സംഭവത്തിൽ ശുദ്ധിക്രിയ നടത്താൻ തന്ത്രി മാർ നിർദേശിച്ചു ഇന്നലെ ദർശനത്തിനെത്തിയ നാല് ട്രാൻസ്ജെൻഡറുകൾക്ക് സംരക്ഷണം നൽകാനെത്തിയ പൊലീ സുകാരാണ് ബൂട്ട് ഉപയോഗിച്ചത് മാളികപ്പുറം ഫ്ളൈ ഓവറിൽ ബൂട്ട് ധരിച്ച് പ്രവേശിച്ച പൊലീസ് നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു ഉച്ചപൂജക്കു മുമ്പ് ശുദ്ധിക്രിയകൾ നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്

ശബരിമല വിഷയത്തിൽ തുടർ പ്രക്ഷോഭങ്ങൾ തീരുമാനി ക്കാൻ ബി ജെ പി സംസ്ഥാന കോർ കമ്മിറ്റിയും മുതിർന്ന നേതാ ക്കളും ഇന്ന് യോഗം ചേരുന്നുണ്ട് സത്യം പറയുന്നവരെ ആർ എസ് എസ് ആക്കുകയാണ് പിണ റായി വിജയനും കോടിയേരി ബാലകൃഷ്ണനുമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ശബരിമലയിൽ നഷ്ടപ്പെട്ട ജനപിന്തുണ ആർ എസ് എസിനെ കാണിച്ച് നേടാൻ ശ്രമിക്കുന്നത് അപഹാസ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷ ദിനാചരണ സമാപന സമ്മേളനം ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മുതിർന്ന പൌരന്മാരെ ആദരിക്കും എട്ടാമത് സർഗാലയ അന്താരാഷ്ട്ര കലാ കരകൌശല മേളക്ക് നാളെ വടകര ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ തുടക്കമാകും വൈകീട്ട് ആറരയ്ക്ക് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മേള ഉദ്ഘാടനം ചെയ്യും

ഗസൽ ഗാനമേള മാജിക് പ്രദർശനം കോമഡി ഉത്സവം ഇശൽ നൈറ്റ് തുടങ്ങിയ പരിപാടികൾ മേളയുടെ ഭാഗമായി നടക്കും കേരള ഗ്രാമീണബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ആരംഭിച്ച സമരംരണ്ടാം ദിവസവും തുടരുന്നു ഇതോടെ മിക്ക ബ്രാഞ്ചുകളുടേയും പ്രവർത്തനം തടസ്സപ്പെട്ടു കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടു ത്തണമെന്നാവശൃപ്പെട്ടാണ് സമരം

ഗ്രാമീൺ ബാങ്ക് എംപ്ലോയീസ് യൂണിയനും ഓഫീസേഴ്സ് യൂണിയനും സംയുക്തമായാണ് സമരം നടത്തുന്നത് കോട്ടയം പാലായിലെ കന്യാസ്ത്രീ മഠത്തിൽ സിസ്റ്റർ അമല കൊല്ലപ്പെട്ട കേസിൽ ഒരാൾ കുറ്റക്കാരനാണെന്ന് പാലാ ജുഡീഷൃൽ മജിസ്ട്രേറ്റ് കോടതി വിധിച്ചു

നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് കേസില്ലി പ്രതി ഉതുപ്പ് വർഗീസിന്റെ ജാമ്യവൃവസ്ഥയിൽ അനുവദിച്ച ഇളവ് ഹൈക്കോടതി റദ്ദാക്കി ഉതുപ്പ് വർഗീസ് അടുത്ത മാസം അഞ്ചിന് മുമ്പായി കേരളത്തിൽ തിരിച്ചെത്തണമെന്നും കോടതി ഉത്തരവിട്ടു

കൊച്ചിയിൽ യുവനടിയെ ആക്രമിച്ച കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കേസിലെ പ്രതി നടൻ ദിലീപ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി കേസിൽ കുറ്റപത്രം സമർപ്പിച്ച സാഹചരൃത്തിൽ സിബിഐ അന്വേഷണത്തിന് പ്രസക്തിയില്ലെ ന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതി ഹർജി തള്ളിയത്

ഹർത്താൽ ദിനം കടകൾ തുറന്നു പ്രവർത്തി ക്കാനുള്ള ഒരുക്കത്തിലാണ് വ്യാപാരികൾ ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് യാത്രക്ക് അപേക്ഷിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും

ഇതേ തുടർന്ന് കൊല്ലം ആലപ്പുഴ പാസഞ്ചർ റദ്ദാക്കി

എറണാകുളം തൃശൂർ റെയിൽപാതയിൽ ഭാഗികമായി തട സ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപ്പിച്ചു അങ്കമാലി പാളത്തിൽ വൈദ്യുതി ലൈൻ പൊട്ടിവീണിരുന്നു

വൈദ്യുതി ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി റെയിൽവെ അറിയി ച്ചു എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് ചൊവ്വര അപ് ലൈനിൽ കുടുങ്ങിയതും ഗതാഗത തടസ്സത്തിനിടയാക്കിരുന്നു ഭിന്നലിംഗക്കാർക്കായി സംസ്ഥാനത്തെ ആദ്യ പൊതുശൌചാ ലയം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ കന്റോൺമെന്റ് ബോർഡാണ് ശൌചാലയം നിർമ്മിച്ചത്